രാഷ്ട്രത്തിന്റെ സ്മരണാഞ്ജലി

മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മവാർഷികത്തിൽ രാഷ്ട്രത്തിന്റെ ശ്രദ്ധാഞ്ജലി

ഖാൻ ഐകൃരാഷ്ട്ര സഭയിൽ ഉന്നയിച്ച ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ച് ജമ്മു കാശ്മീർ ഗവൺമെന്റ്

നാളെ അവസാനിക്കും

ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് വിപുലമായആഘോഷ പരിപാടികളാണ് രാജ്യമെമ്പാടും നടക്കുന്നത്

മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം പ കൊള്ളുന്ന രാജ്ഘട്ടിൽ സംഘടിപ്പിക്കുന്ന സർവ്വധർമ്മ പ്രാർത്ഥന സഭയാണ് ഇന്നത്തെ പ്രധാന പരിപാടി രാഷ്ട്രപതി രാർ നാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാന്മുന്തി നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സ്പിക്ക് ലോക്സഭാസ്പീക്കർഓം ബിർള രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷ് രാജ്യരക്ഷാ മന്ത്രി രാജ് നാഥ്സിംഗ് കേന്ദ്രമന്ത്രിമാർ ബി ജെ

മുതിർന്ന നേതാവ് എൽ

അദ്ധാനി ബി

വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ കോൺഗ്രസിന്റെ ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധി തുടങ്ങിയവർ ഗാന്ധിസമാധിയിൽ പുഷ്പാർച്ചന നടത്തി അഹമ്മദാബാദിലെ സബർമതി ആശ്രമം ഇന്ന് വൈകിട്ട് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ആശ്രമത്തെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും

സാമുദായിക ഐക്യത്തിന്റെ പ്രാധാന്യം ആഗോള ജനതയ്ക്ക് മനസ്സിലാക്കിക്കൊടുത്ത ലോക നേതാവാണ് മഹാത്മാഗാന്ധി എന്ന് രാഷ്ട്രപതി രാംനാഥ്കോവിന്ദ് ഗാന്ധിജയന്തി സന്ദേശത്തിൽ പറഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന ഗാന്ധി സങ്കൽപ് യാത്രയ്ക്ക് പച്ചക്കൊടി വീശും രാജ്യവ്യാപകമായി കോൺഗ്രസ്സിന്റെ നേതൃത്വത്തിൽ പദയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പതിനായിരത്തിലേറ്റെ പിദ്യാർത്ഥികൾ സൌരോർജ്ജ വിളക്കുകൾ ഒരേസമയം തെളിയിക്കു്ം ആഗോള വിദ്യാർത്ഥി സൌരോർജ്ജസഭയുടെ നേതൃത്പ്തിലുള്ള പരിപാടി ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് സംഘടിപ്പിക്കുന്നത്

ഉത്തർപ്രദേശിൽ ഇന്ന് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നു

വിവിധ ഗവൺമെന്റ് വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് അസമിലെ ഗാന്ധിജയന്തി പരിപാടികൾ ഗാന്ധിജി താമസിച്ചിരുന്ന മുംബൈയിലെ മണി ഭവനിൽ നൂൽനൂക്കുന്ന പരിപാടിയും ഭജൻ ആലാപനവും നടക്കും രാജ്യത്തിന് പുറത്തും ഗാന്ധിജയന്തി വിപുലമായി ആഘോഷിക്കൂകയാണ്

ഗാന്ധിയൻ മൂലൃങ്ങൾ ആദരിക്കുന്നതിന്റെ ഭാഗമായി പലസ്തീനും സ്മാരക തപാൽ സ്റ്റാമ്പ് പ്രകാശനം ചെയ്യും ഇന്ത്യയോടൊപ്പം മഹാത്മജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായി ഇന്തൃയിലെ ഫ്രഞ്ച് സ്ഥാനപതി ഇമ്മാനുവേൽ ലിനെയ്ൻ ട്വീറ്റർ സന്ദേശം അയച്ചു

ഡാക്കയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം സംഘടിപ്പിച്ച ആഘോഷങ്ങളിൽ ഗാന്ധിജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പ്രശ്സ്ത നർത്തകിയും നൃത്ത സംവിധായകയുമായ ഷർമ്മിള ബാനർജി നൃത്ത നാടകം അവതരിപ്പിച്ചു

സ്വന്തം ജീവിതം തന്നെ ലോകത്തിനുള്ള സന്ദേശമാക്കിയ നേതാവാണ് മഹാത്മാ ഗാന്ധി ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഒളിമങ്ങാതെ തിളങ്ങി നിൽക്കുന്നു എല്ലാ വിഭാഗം ജനങ്ങളേയും ഒന്നായി കാണാനുള്ള വിശാലമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചായിരുന്നു ഗാന്ധിജിയുടെ ചുവടുവയ്പ്പെന്നും മുഖ്യമന്ത്രി ഗാന്ധിജയന്തി ദിന സന്ദേശത്തിൽ പറഞ്ഞു ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ മുഖ്യമന്ത്രി പുഷ്പാർച്ചന നടത്തി

ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ലാൽബഹാദൂർ ശാസ്ത്രിയുടെ സമാധി സ്മാനമായ ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി

പങ്കെടുക്കുന്നവർ വ്യായാമത്തിനിടെ റോഡിലെ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതാണ് പ്ലോഗ് റൺ

ജമ്മു കശ്മീരിലെ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നതുൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിയ്ക്കാൻ വേണ്ടി ബോധപൂർവ്വം കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് പാകിസ്ഥാൻ ഉന്നയിച്ചതെന്നും ഔദ്യോഗിക വക്താവ് പറഞ്ഞു ജമ്മു കശ്മീരിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവർക്കും നിയന്ത്രണങ്ങൾ കൂടാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം സംജാതമായിരിക്കുന്നു

ഇതര സംസ്ഥാനങ്ങളിലേത് പോലെ ജമ്മു കാശ്മീരിൽ ദേശീയ നിയമ സർവ്വകലാശാല സ്ഥാപിക്കുന്നത് വിഭാവന്റ് ചെയ്യുന്നതാണ് ബിൽ

ഗവൺമെന്റ് അനുവദിച്ച സമയപരിധി അവസാനിക്കുന്നതോടെ താൽക്കാലികമായി പുനഃസ്ഥാപിച്ച വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കും ഫ്ളാറ്റുകൾ ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് മാനുഷിക പരിഗണന നൽകണമെന്ന് ഫ്ളാറ്റ് ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള നഗര്സഭാ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്

ഗംഗ പുൽപുൻ ബൂഡി ഗണ്ഡക് തുടങ്ങിയ നദികളിൽ നീരൊഴുക്ക് അപകട നിലയ്ക്ക് മുകളിലാണ് കൂടുതൽ സ്ഥലങ്ങളിലേയ്ക്ക് പ്രളയം വ്യാപിക്കുന്നുണ്ട്

പട്നയിൽ മാത്രം മൂന്ന് ലക്ഷം പ്രളയബാധിതരുണ്ട് ഏകദേശം അൻപതിനായിരം പേരെ ഇതുവരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ടെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാംതവണ അധികാരത്തിലെത്തിയതിന് ശേഷം ശ്രീമതി ഷെയ്ഖ് ഹസീനയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇത്

ടോസ് നേടിയ ഇന്ത്യ ബ്ലാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ഓപ്പണറായി ് ഇറങ്ങിയ രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചറി നേടി